മുസ്ലിം ലീഗുകാർ കള്ളവോട്ട് ചെയ്തുവെന്ന് പരാതിയിൽ റിപ്പോർട്ട് ആവ ശ്യപ്പെട്ടു

ൾ ൽ ൾ മുസ്ലിം ലീഗുകാർ കള്ളവോട്ട് ചെയ്തെന്ന പരാതിയിൽ കാസർകോഡ് കണ്ണൂർ കലക്ടർമാരോട് റിപ്പോർട്ട് ആവശ്യപ്പെ ട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറി യിച്ചു വസ്തുതാപരമായ റിപ്പോർട്ട് അടിയന്തിരമായി സമർപ്പി ക്കാൻ നിർദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് പൊലീസിന്റെ പോസ്റ്റൽ വോട്ടുകൾ കൂട്ടമായി ശേഖരിച്ചു വെന്ന ആരോപണം ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്ന് മുഖൃ തെരഞ്ഞെ ടുപ്പ് ഓഫീസർ പറഞ്ഞു നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഇതെക്കുറിച്ച് പരാതി നൽകിയി രുന്നു നിയമപ്രകാരം മാത്രമാണ് പോസ്റ്റൽ ബാലറ്റുകൾ നൽകി യതെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ അറിയിച്ചിരുന്നുവെന്നും ടിക്കാറാം മീണ പറഞ്ഞു നോഡൽ ഓഫീസറാണ് ഇക്കാര്യങ്ങ ളിൽ തീരുമാനമെടുക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പൊലീസ് ഉദ്യോഗ സ്ഥരുടെ പോസ്റ്റൽ വോട്ടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉദ്യോഗസ്ഥരുടെ ബാലറ്റുകൾ ഒന്നിച്ച് ശേഖ രിക്കാൻ പാടില്ലെന്ന് നേരത്തെത്തന്നെ നിർദേശം നൽകിയിരുന്നു ഇതിന് വിരുദ്ധമായി നടപടികൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ പരി ശോധിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പൊലീസുകാരുടെ ബാലറ്റ് പേപ്പറുകൾ സംഘടനാ തലത്തിൽ ഒന്നിച്ച് വാങ്ങി വോട്ട് രേഖപ്പെടുത്തിയെന്ന റിപ്പോർട്ടു കളോട് പ്രതികരിക്കുകയായിരുന്നു ഡി

വോട്ടിങ് തിരിമറി സംബന്ധിച്ച ആരോപണം ഇന്റലിജൻസ് എഡിജിപി അമ്പേഷി ക്കുമെന്നും ബെഹ്റ പറഞ്ഞു

മജീദ് പറഞ്ഞു പ്രവർത്തകർക്ക് പങ്കു ണ്ടെന്ന് കണ്ടാൽ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം മലപ്പുറത്ത് വ്യക്തമാക്കി

പോസ്റ്റൽ വോട്ടുകൾ പൊലീസ് അസോസിയേഷൻ അശേഖരിച്ചുവെന്ന റിപ്പോർട്ടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യ പ്പെട്ടു കഴിഞ്ഞ തവണ ഇതെക്കുറിച്ച് ലീഗ് പരാതി നൽകിയതാ ണെന്നും മജീദ് പറഞ്ഞു കാസർകോഡ് കണ്ണൂർ ജില്ലകളിൽ കള്ളവോട്ട് ചെയ്ത സംഭ വത്തിൽ സിപിഐഎം കേന്ദ്ര നേതൃത്വവും മുഖ്യമന്ത്രിയും മൌനം വെടിയണമെന്ന് കോൺഗ്രസ് നേതാവ് വി

കള്ളവോട്ടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നട പടി വേണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

വോട്ടെ ടുപ്പ് പൊതുവെ സമാധാനപമാണ്

വടകരയിൽ താൻ ജയിക്കും എന്നതിനാൽ റീപോളിങ് ആവ ശ്യപ്പെടില്ലെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥിയും കെപിസിസി പ്രചാ രണവിഭാഗം അധ്യക്ഷനുമായ കെ

എന്നാൽ കള്ളവോട്ട് ചെയ്തവർക്കെതിരെ നിയമനടപ്പടി സ്വീക രിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കള്ളവോട്ട് സിപിഐഎമ്മിന്റെ ആചാരമായി മാറിയിരിക്കയാണെന്ന് മുരളീ ധരൻ കുറ്റപ്പെടുത്തി

അതേസമയം എതിർ സ്ഥാനാർത്ഥി നിർദേശിച്ച ബൂത്തു കൾ അതേപടി അതീവ പ്രശ്നബാധിത ബൂത്തുകളാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെ തിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കു്മെന്നും മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ബിജെപി വ്യോട്ട് യുഡിഎഫിന് മറിച്ചുവെ ന്നാണ് സിപിഐഎം സൃംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണൻ ആരോപിക്കുന്നത് അതേസമയം ബിജെപി വോട്ടു കൾ വർധിക്കുമെന്നും അദ്ദേഹം പറയുന്നു വോട്ടുകൾ മറിച്ചാൽ ബിജെപി വോട്ടുകൾ എങ്ങിനെ കൂടുമെന്ന് കോടിയേരി വ്യക്ത മാക്കണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടു

ദേശീയ പ്രതിസന്ധി നിവാരണ സമിതിയുടെ തീരുമാന പ്രകാരം ആഭ്യന്തര മന്ത്രാലയ മാണ് മുൻകൂറായി തുക അനുവദിച്ചത്

പൌരത്വം സംബന്ധിച്ച പരാതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസ് നൽകി പൌരത്വം സംബന്ധിച്ച് നിലവിലെ സ്ഥിതി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് രാഹുൽ ബ്രിട്ടീഷ് പൌരനാണെന്ന ബിജെപി നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയുടെ പരാതിയുടെ അടി സ്ഥാനത്തിലാണ് നടപടി രണ്ടാഴ്ചക്കകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും ഡൽഹി ആകാശ വാണിയിലെ മുൻ മലയാള വാർത്താ അവതാരകനുമായിരുന്ന ഗോപന് സമൂഹത്തിന്റെ നാനാതുറകളിൽപെട്ടവരുടെ അന്ത്യാ ഞ്ജലി ഡൽഹി കൽക്കാജിയില്ലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് സംസ്കാരം വൈകീട്ട് അഞ്ചരക്ക് ലോധിറോഡ് ശ്മശാനത്തിൽ നടക്കും

വാർത്ത വായനക്ക് സ്വന്തമായ ശൈലിയും അവതരണ രീതിയും നൽകിയ ഗോപൻ എന്ന എസ്

അതിന് ശേഷം ഗോപൻ പരസ്യരംഗത്ത് സജീവമായിരുന്നു

വിമാനത്താവള എസി മെക്കാനിക്കായ അനീഷിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത് ദുബായിൽ നിന്ന് എമിറേറ്റസ് വിമാനത്തിൽ എത്തിച്ച സ്വർണം എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് അഞ്ചാം തവണയാണ് വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തുന്നതെന്ന് അനീഷ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി

സംസ്ഥാനത്തെ തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡണ്ട് രമ്യാ ഹരി ദാസ് രാജിവെച്ചു രാഷ്ട്രീയ ധാർമികതയുടെ ഭാഗമായാണ് രാജി യെന്നും കോൺഗ്രസ് ഏൽപിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നതിനാലാണ് തീരുമാനമെന്നും അവർ മാധ്യമങ്ങളോട് പറ ഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്നു രമ്യാഹരിദാസ് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിനെ നേരിടും രാത്രി എട്ടിന് ബംഗളൂരുവിലാണ് മത്സരം കാസർകോഡ് കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെകൂടി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു

സാധാരണവി ഭാഗത്തിൽപെട്ട അപേക്ഷകൾ മാത്രമായിരിക്കും മേളയിൽ പരി ഗണിക്കുകയെന്ന് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസർ അറി യിച്ചു അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയം ലഭിക്കാൻ മുൻകൂട്ടി ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു

കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നലെ വീശിയ ടിച്ച ചുഴലിക്കാറ്റിൽ കേളകത്ത് മരംവീണ് വീട് തകർന്നു

ഇതിന്റെ ഇടുക്കി ജില്ലാ തല ഉദ്ഘാ ടനം മറ്റന്നാൾ തൊടുപുഴ വൈദ്യുതി ഭവനിൽ നടക്കും

വൈദ്യുതി അപകടങ്ങളെക്കുറിച്ചും സുരക്ഷാ മുൻക രുതലുകളെക്കുറിച്ചും സംബന്ധിച്ചും പൊതുജനങ്ങളെ ബോധ വൽക്കരിക്കുകയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം

ചേർത്തല മജിസ്ട്രേട്ട് കോടതി യാണ് പട്ടണക്കാട് സ്വദേശി ആതിരയെ റിമാന്റ് ചെയ്തത് പെട്ടെ ന്നുണ്ടായ ദേഷ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് ആതിര പൊലീസിന് മൊഴി നൽകിയിരുന്നു ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കലാമേളയായ ഇന്റർ മെഡിക്കോസ് ഫെസ്റ്റിൽ ആലപ്പുഴ മെഡിക്കൽ കോളജ് മുന്നേറുന്നു കോട്ടയം മെഡിക്കൽ കോളജാണ് തൊട്ടുപിന്നിൽ വണ്ടാനം മെഡിക്കൽ കോളജിൽ നടക്കുന്ന മേള ശനിയാഴ്ച സമാപിക്കും പാലക്കാട് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും തൊഴിൽ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്നും നാളെയുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന മെയ്ദിന കായിക മത്സരങ്ങൾ മാറ്റി വെച്ചതായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അറി യിച്ചു കാസർകോഡ് ഇന്നലെ ഇടിമിന്നലോട് കൂടി പെയ്ത കനത്ത മഴയിൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു